കൊറോണ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് മത സാംസ്കാരിക ഉത്സവങ്ങളും പൊതുപരിപാടികളും നിരോധിച്ച് ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു

ആലപ്പുഴ പുളിങ്കുന്നിൽ അനധികൃത പടക്കശാലയിലുണ്ടായ പൊട്ടി ത്തെറിയിൽ മരണസംഖ്യ മൂന്നായി

ഇന്ന് മുഴു വൻ വീടുകളിൽ കഴിയാൻ ജനങ്ങളോട് ആവശ്യപ്പെട്ടി ട്ടുണ്ട് അവശ്യ സേവന വിഭാഗങ്ങൾ ഒഴികെ കടകളും വിപണികളും അടഞ്ഞു കിടക്കും പൊതു ഗതാഗത സംവിധാനങ്ങൾ ജനതാ കർഫ്യൂ വേളയിൽ നിർത്തിവെ യ്ക്കും

ടാക്സികളും ഓട്ടോയും നിരത്തിലിറങ്ങില്ല ജനതാ കർഫ്യൂ കർശനമായി പാലിക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജ യനും ആവശ്യപ്പെട്ടു വീടും പരിസരവും വൃത്തിയാ ക്കാൻ ഇന്നത്തെ ദിവസം പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കൊറോണ പ്രതി രോ ധത്തിന് പ്രവർത്തിക്കുന്ന ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയും അഭി നന്ദിക്കാനും അവരോട് നന്ദി അറിയിക്കാനും വൈകിട്ട് അഞ്ചിന് അഞ്ച് മിനുട്ട് നേരം നീക്കിവെയ്ക്കണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു വീടിന്റെ ബാൽക്കണി യിലോ മുന്നിലോ നിന്ന് കൈയടിച്ചും മണിയടിച്ചും അവരെ ആദരം അറിയിക്കും

ഏതാനും സ്വകാരൃ വിമാന കമ്പനികൾ ആഭൃന്തര സർവ്വീ സുകൾ ഇന്നത്തേക്ക് നിർത്തിയതായി അറിയിച്ചിട്ടുണ്ട് കൊറോണ വൃാപനത്തിന്റെ പേരിൽ അന്യനാടുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ സ്വന്തം വീടുകളിൽ എത്തിച്ചേരാൻ ട്രെയിൻ ബസ് യാത്രകൾ ഒഴിവാക്കണ മെന്ന് പ്രധാനമന്ത്രി ന്രേന്ദ്രമോദി അഭൃർത്ഥിച്ചു ഇപ്പോൾ കഴിയുന്ന ഇടങ്ങളിൽതന്നെ അവർ തുടരുകയാണ് വേണ്ട തെന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു ഇത്തരം യാത്രകൾ സ്വന്തം ആരോഗ്യത്തിന് മാത്രമല്ല കുടുംബാംഗങ്ങളുടെ സുരക്ഷയ്ക്കും ദോഷം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറ ഞ്ഞു

കാസർകോട്ട് ആറും എറണാകുളത്തും കണ്ണൂരും മൂന്നുവീതം ആളുകൾക്കുമാണ് രോഗം ബാധിച്ചത്

കോവിഡ് രോഗ വ്യാപനം തടയാൻ ഗവൺമെന്റ് നൽകിയ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിരോധനാജ്ഞ ഉൾപ്പെടെ കർക്കശ നപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

അവശ്യ സേവനം ഉറപ്പാക്കാൻ ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി പൊലീസ് മേധാവി എന്നിവരടങ്ങിയ സമിതി രൂപീകരിക്കും നഗതാഗതം ചരക്കുനീക്കം എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾക്ക് പൊതുഭരണ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ മറ്റൊരു സമിതിയും രൂപീകരിച്ചിട്ടുണ്ട് സംസ്ഥാനത്തേക്ക് വരുന്നു ചരക്ക് വാഹനങ്ങൾ അതിർത്തിയിൽ തടയില്ലെന്ന് തമിഴ്നാട് ചീഫ് സെക്രട്ടറി ഉറപ്പ് നൽകിയതായും മുഖ്യമന്ത്രി അറിയിച്ചു

കടകൾ അടയ്ക്കാൻ പോകുന്നു എന്നതുൾപ്പെടെ അനാവശ്യ പ്രചരണങ്ങൾ പാടില്ല

വ്യാപാരികൾ വീടുകളിൽ സാധനം എത്തിച്ചുകൊടുക്കുന്ന സംവിധാനം ശക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു സംസ്ഥാനത്തെ മൂന്ന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ സാമ്പിളുകൾ പരിശോധിക്കാൻ കൂടുതൽ ഷിഫ്റ്റ് ഏർപ്പെടുത്തും അവശ്യ സൌകര്യങ്ങൾ ലഭ്യമായ സ്വകാര്യ ലാബുകളെയും സ്ഥാപനങ്ങളെയും പരിശോധനയിൽ പങ്കെടുപ്പിക്കാൻ നടപടിയെടുക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ

ജില്ലാ കലക്ടർമാരേയും ജില്ലാ പൊലീസ് മേധാവികളേയും ഇതിന് അധികാരപ്പെ ടുത്തി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ കോവിഡ് നിരീക്ഷണത്തിൽ കഴിയുന്നത് കോഴിക്കോട് ജില്ലയിലാണ്

വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ ബന്ധുക്കൾ ഹാർബറിൽ പ്രവേശിക്കരുതെന്ന് ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ആവശ്യപ്പെട്ടു

ഗൃഹനിരീക്ഷണം ലംഘിച്ച് പുറത്തിറങ്ങി നടക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് പ്രത്യേക നിരീക്ഷണത്തിലാക്കുമെന്ന് മന്ത്രി ജെ മേഴ്സിക്കുട്ടിയമ്മ മുന്നറിയിപ്പ് നൽകി

ആശുപത്രികളിൽ ആരെയും പ്രവേശിപ്പിച്ചിട്ടില്ല

കൊറോണ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ തൂവാല ഉപയോഗിച്ച് പ്രതിരോധം വ്യാപകമാക്കാൻ ആലപ്പുഴ ജില്ലാ ഭരണകൂടം രംഗത്ത് വന്നു

സുധാകരനും ഡോ തോമസ് ഐസക്കും ചേർന്ന് പരി പാടിക്ക് തുടക്കം കുറിച്ചു ബ്രെയ്ക്ക് ദ ചെയിൻ പ്രചാ രണത്തിന്റെ ഭാഗമായി ജില്ലാ കലക്ടറുടെ നേതൃത്വ ത്തിൽ തൂവാലകൾ വിതരണം ചെയ്യും കേരള കർണ്ണാടക അതിർത്തിയായ മാക്കൂട്ടത്ത് പരി ശോധന കർശനമായി തുടരുന്നു കേരളത്തിലെ വാഹ നങ്ങൾ കുടക് ജില്ലയിലേക്ക് കടക്കുന്നതിൽ നിയന്ത്രണം ശക്തമാണ്

ആലപ്പുഴ പുളിങ്കുന്നിൽ അനധികൃത പടക്ക നിർമ്മാണ ശാലയിലുണ്ടായ പൊട്ടിത്തെറിയിൽ മരണ സംഖ്യ മൂന്നായി പുളിങ്കുന്ന് മുപ്പതിൽ ജോസഫ് ചാക്കോ കണ്ണാടിമലയിൽ ബിനു എന്നിവരാണ് ഇന്നലെ മരിച്ചത്